ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ജോ ബൈഡനുമായി ഒന്നിച്ച് പ്രവവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി

അഞ്ച് പുതിയ ഐ ടി ഐകൾ കൂടി സ്ഥാപിക്കും

ത പുതിയ കൃഷിനിയമങ്ങൾ നടപ്പാക്കുന്നത് ഒന്നര വർഷം വരെ നിർത്തിവെയ്ക്കാമെന്ന് കേന്ദ്രം കർഷക സംഘടനാ നേതാക്കളെ അറിയിച്ചു

എസ് എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന് ജയം

കൊവിഡും സുരക്ഷയും കണക്കിലെടുത്ത് വൻ ജനാവലി ഇല്ലാതെ യു എസ് പാർലമെന്റ് മന്ദിരത്തിന്റെ വേദിയിലായിരുന്നു ചടങ്ങ് ആയിരം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആദ്യം കമലാ ഹാരിസും പിന്നീട് ജോ ബൈഡനും സത്യപ്രതിജ്ഞ ചെയ്തു

ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി അധികാരമേറ്റ കമലാഹാരിസ് ഇന്ത്യൻ വംശജയാണ് രെട രാഷ്ട്രീയ തീവ്രവാദവും വെള്ളക്കാരുടെ ആധിപത്യവും ഇല്ലാതാക്കുമെന്ന് അധികാരമേറ്റശേഷം നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കി എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റായിരിക്കുമെന്നും രാജ്യത്ത് ഐക്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ജോബൈഡനുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ അറിയിച്ചു ഇന്ത്യയും അമേരിക്കയും പൊതു വെല്ലുവിളികളെ നേരിടുന്നതിനും ആഗോള സമാധാനവും സുരക്ഷയും വർധിപ്പിക്കുന്നതിനും ഒന്നിച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ യു എസ് പങ്കാളിത്തം മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും ഇരു അരാജ്യങ്ങൾക്കും സ്ഥായിയും ബഹുമുഖവുമായ ഉഭയകക്ഷി അജണ്ടയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ വൈസ് പ്രസിഡന്റ് കമലാഹാരിസിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രെട സംസ്ഥാനത്തെ തോട്ടം മേഖല അഭിവൃദ്ധിപ്പെടുത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്ന തോട്ടവിള നയത്തിന്റെ കരട് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ചു അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും തോട്ടം തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യം ഏർപ്പെടുത്തുകയും ചെയ്യും

ഗവൺമെന്റ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന തോട്ടങ്ങൾ ലാഭകരമാക്കുമെന്നും കരട് നയത്തിൽ പറയുന്നു തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കർമ്മ പദ്ധതി നടപ്പാക്കും തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഗവണ്മെന്റ് നിയോഗിച്ച ജസ്റ്റിസ് കൃഷ്ണൻനായർ കമ്മീഷന്റെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് തോട്ടവിള നയത്തിന് രൂപം നൽകിയത്

കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പോരുവഴി ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ കരുണാപുരം മലപ്പുറം ജില്ലയിലെ വാഴക്കാട് എന്നിവിടങ്ങളിലാണ് പുതിതിയ ഐ ടി ഐ കൾ

ടെട റിപ്പബ്ലിക്ദിനാഘോഷത്തിന്റെ ഭാഗമായി സേനാ വിഭാഗങ്ങൾ നടത്തുന്ന പരേഡിൽ തിരുവന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ ദേശീയപതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും

ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും കൊല്ലത്ത് ജെ മേഴ്സികുട്ടിഅമ്മ പത്തനംതിട്ടയിൽ കെ രാജു ആലപ്പുഴയിൽ ജി സുധാകരൻ കോട്ടയത്ത് പി തിലോത്തമൻ ഇടുക്കിയിൽ എം

മണി എറണാകുളത്ത് എ

തൃശൂരിൽ വി

സുനിൽകുമാർ പാലക്കാട് കെ കൃഷ്ണൻകുട്ടി മലപ്പുറം ഡോ

ജലീൽ കോഴിക്കോട് ടി

രാമകൃഷ്ണൻ വയനാട് രാമചന്ദ്രൻ കടന്നപ്പളളി കണ്ണൂർ ഇ

ജയരാജൻ കാസർകോഡ് ഇ ചന്ദ്രശേഖരൻ എന്നിവരാണ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുക

ടെട എറണാകുളം ജില്ലയിൽ കൊവിഡ് ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി ഉയർത്താൻ ജില്ലാ കലക്ടർ ഗവണ്മെന്റ് സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി രോഗം മറ്റുളളവരിലേക്ക് പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എടുക്കാനാണ് പരിശോധന കൂട്ടുന്നത് ടെട കൊല്ലം ജില്ലയിൽ കൊവിഡ് രോഗികളുടെ വർധന തടയുന്നതിന് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ കലക്ടർ ബി

മൺട്രോതുരുത്ത് പോലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും തിരക്ക് വർധിച്ചതായും ഇത് കോവിഡ് വ്യാപന സാധ്യത ഉയർത്തുമെന്നും ദുരന്തനിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ അറിയിച്ചു ടെട്ട നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചു

വാർദ്ധക്യസഹജമായ അസുഖങ്ങളെത്തുടർന്ന് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ഇന്നലെ വൈകീട്ട് ആറു മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കോവിഡ് ബാധിച്ച് ചികിൽസയിലായിരുന്ന അദ്ദേഹം രോഗമുക്തനായി കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇന്നലെ രാവിലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെത്തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു

ഒരാൾമാത്രം കൈക്കുടന്ന നിലാവ് കളിയാട്ടം കല്യാണരാമൻചന്ദ്രമുഖി തുടങ്ങി ഇരുപത്തഞ്ചോളം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു

പ്രായത്തെ കടന്നു നിൽക്കുന്ന അഭിനയ താല്പര്യവും ആത്മവിശ്വാസവും അദ്ദേഹത്തെ ചലച്ചിത്രരംഗത്തെ വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കിയെന്നും ഇടതുപക്ഷ സഹയാത്രികന നായിരുന്ന അദ്ദേഹത്തിന്റെ വേർപാട് കലാലോകത്തിനു വലിയ നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എ

രെട സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച ഏഴ് തദ്ദേശ ഭരണ വാർഡുകളിൽ പ്രത്യേക തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും കൊല്ലം പന്മന ഗ്രാമപഞ്ചായത്തിലെ പറമ്പിമുക്ക് ചോല ആലപ്പുഴ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പി എച്ച് ഡി വാർഡ് എറണാകുളം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുൻസിപ്പൽ വാർഡ് തൃശൂർ കോർപ്പറേഷനിലെ പുല്ലഴി വാർഡ് കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർപൊയ്യിൽ കണ്ണൂർ ജില്ലാപഞ്ചായ ത്തിലെ തില്ലങ്കേരി എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് അൽപ സമയത്തിനകം ആരംഭിക്കും വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ്

ഈ കാലയളവിൽ കർഷക യൂണിയൻ പ്രതിനിധികൾക്കും ഗവൺമെന്റിനും കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാമെന്നും അനുയോജ്യ തീരുമാനത്തിൽ എത്താമെന്നും അറിയിച്ചതായും പത്താംവട്ട ചർച്ചയ്ക്കുശേഷം അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിർദ്ദേശം വിശദമായി ചർച്ച ചെയ്ത ശേഷം നാളെ നടക്കുന്ന അടുത്തവട്ടം ചർച്ചയിൽ തീരുമാനം അറിയിക്കാമെന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ പ്രതികരിച്ചതായും നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം

സി സ്റ്റേഡിയത്തിൽ നടന്ന മൽസരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു എഫ് സിയെ പരാജയപ്പെടുത്തിയത്

ടി കെ മോഹൻബഗാൻ ചെന്നൈയിൻ എഫ് സിയെ നേരിടും രുദ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു വിശദാംശങ്ങൾ ഇന്ന് ലഭിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് പറഞ്ഞു

ടെട ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന തടസ്സ രഹിത റോഡ് ശൃംഖല പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമാണോദ്ഘാടനം മറ്റന്നാൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവ്വഹിക്കും

ഈ പദ്ധതിയിൻ കീഴിൽ പത്ത് റെയിൽവെ മേൽപ്പാലങ്ങളാണ് വിവിധ ജില്ലകളിലായി നിർമ്മിക്കുന്നത് രെടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംങ് ഇന്ന് ആരംഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു

ഒരിക്കൽ മസ്റ്റർ ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ലെന്നും അറിയിപ്പിൽ പറയുന്നു ടെട സംസ്ഥാന ഹജ്ജ് കമ്മറ്റിയുടെ കോഴിക്കോട് പുതിയറയിലെ ഓഫീസ് പുനരാരംഭിക്കുവാൻ സംസ്ഥാന ഹജ്ജ് കമ്മറ്റി യോഗം തീരുമാനിച്ചു ഹജ്ജ് കമ്മറ്റി മുഖേന ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും എല്ലാ സേവനങ്ങളും കോഴിക്കോട്ടെ ഓഫിസിലും ലഭിക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ കോഴിക്കോട്ട് അറിയിച്ചു രുദ വയനാട് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനായി നിയോഗിച്ച വിദഗ്ധ സംഘം ഭൂമി പരിശോധന ആരംഭിച്ചു നാളെ തന്നെ ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ കലക്ടർ ഡോ